നരേന്ദ്രമോദി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും

ജെ

ശാരദാ ചിട്ടി തട്ടിപ്പു കേസിൽ പശ്ചിമ ബംഗാളിലെ രണ്ടു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കു കൂടി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സി

വിപണിയിൽ ലഭ്യമാകും

ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും

സന്നാഹ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശിനോട് ജയം

രാഷ്ട്രപതി ഭവനിൽ നാളെ വൈകിട്ട് ഏഴ് മണിക്കാണ് ചടങ്ങ് കൂടുതൽവിവരങ്ങളുമായി ഷീജാ ഗണേഷ്

ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ ഹമീദ് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന കിർഗീസ്ഥാൻ പ്രസിഡന്റ് സുറോൺബേ ജീൻബേക്കോവ് മ്യാൻമാർ പ്രസിഡന്റ് വി വിൻമിന്റ് തുടങ്ങിയവർ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട് മൌറീഷ്യസ് പ്രധാനമന്ത്രി പേവിന്ദ് കുമാർ ജുഗ്നൌത്ത് നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ ഒലി ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോ ലോട്ടെ ഷെറിങ്ങ് തായ്ലന്റ് പ്രത്യേക പ്രിതിനിധി ഗ്രിസാദാ ബുനാർക്ക് തുടങ്ങിയവരും പങ്കെടുക്കും

മന്ത്രിസഭാംഗങ്ങളുടെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് വിവിധ എൻ ഡി എ കക്ഷി നേതാക്കളുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ചർച്ച നടത്തിവരുന്നു ന്യൂസ് ഡസ്ക് ആകാശവാണി

ജെ പി നേതാവ് പേമ ഖണ്ഡു ഇന്ന് അധികാരമേൽക്കും ഇറ്റാനഗറിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണ്ണർ ബി

മിശ്ര ശ്രീ

ജെ

ജെ ഡി പ്രസിഡന്റ് നവീൻ പട്നായിക് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും

മറ്റ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും സംസ്ഥാന തലസ്ഥാനമായ ഭുവനേശ്വറിലെ എക്സിബിഷൻ ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ആറായിരത്തിലധികം പ്രമുഖർ പങ്കെടുക്കും

ജെ ഡി നേടിയിരുന്നു

വിവിധ വിഷ്ണയങ്ങളിൽ ഇന്ത്യയുമായി ഉടൻതന്നെ യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ ചർച്ച നടത്തുമെന്നും അമേരിക്കൻ വക്താവ് മൊർഗൻ ഒർട്ടാഗസ് അറിയിച്ചു ഇന്ത്യയിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയിൽ തങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നും ഒർട്ടാഗസ് പറഞ്ഞു

പുനസംഘടനയുടെ ഭാഗമായി ചില മന്ത്രിമാർക്ക് അധിക ചുമതല നൽകിയതായി അവർ അറിയിച്ചു വനം വകുപ്പ് മന്ത്രി ബിനോയ് ബാർമൻ ശാന്തിറാം മഹതോ തുടങ്ങിയവരെ വകുപ്പുകളില്ലാതെ മന്ത്രിസഭയിൽ നിലനിറുത്തിയിട്ടുണ്ട്

ടി

എസ് സംവിധാനത്തിന്റെ ഇടപാട് സമയം റിസർവ് ബാങ്ക് ഒന്നരമണിക്കൂർ കൂടി ദീർഘിപ്പിച്ചു നിലവിൽ വൈകുന്നേരം നാലരവരെ മാത്രമുണ്ടായിരുന്ന സേവനം ആറുമണിവരെ തുടരും അടുത്തമാസം ഒന്നുമുതൽ ഈ മാറ്റം പ്രാബലൃത്തിൽ വരുമെന്ന് ആർ

ഉയർന്ന തുകയിലുള്ള ഇടപാടുകൾക്കാണ് ആർ

രണ്ട് ലക്ഷം രൂപയിൽ കുറയാത്ത എത്ര വലിയ തുകയുടെ ഇടപാടുകളും ഇതിലൂടെ നടത്താനാവും

മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികൾക്ക് ഇനിമുതൽ എൻ

സി മാർക്കറ്റിംഗ് സാങ്കേതിക സാമ്പത്തിക സഹായം നൽകും

മേഖലയിലെ ഭീകര സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്

മേഖലയിൽ ഇപ്പോഴും പോരാട്ടം തുടരുകയാണ് ദക്ഷിണ കാശ്മീരിലെ തന്നെ അനന്ത്നാഗ് ജില്ലയിലെ കുന്ദ്രു കൊക്കർനാഗിന് അടുത്തുള്ള കാഴ്ച്ചർൻ വനമേഖലയിൽ ഇന്നലെ നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു

ബി

അർണബ് ഘോഷ് ദിലീപ് ഹസ്ര എന്നീ ഉദ്യോഗസ്ഥരെയാണ് കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസിൽ ഇന്ന് ചോദ്യം ചെയ്യുക ശാരദാ ചിട്ടിതട്ടിപ്പ് കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളായിരുന്നു ഇരുവരുമെന്ന് അധികൃതർ വ്യക്തമാക്കി

വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മറ്റിയുടെ റിപ്പോർട്ട് പഠിച്ചശേഷമാണ് ഹരിതട്രിബ്യൂണലിന്റെ ഇയ്ല ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ്ക്കിനു്ം ട്രിബ്യൂണൽ നിർദ്ദേശം നൽകി

എറണാകുളം കോട്ടയം തൃശൂർ കട്ടപ്പന ഡെയറികളിൽ നിന്നായിരിക്കും വിതരണം എറണാകുളം കോട്ടയം തൃശൂർ ഇടുക്കി ജില്ലകളിൽ പാൽ ലഭ്യമാവും

വിറ്റാമിൻ ചേർക്കുന്ന പാലിന്റെ പാക്കറ്റിൽ ഇത് പ്രത്യേകം രേഖപ്പെടുത്തും

ആതിഥേയരായ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം

ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്നു മണിക്കും ആറുമണിക്കുമായാണ് ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യൻ താരങ്ങളായ ലിയാണ്ടർ പേയ്സ് ദിവിജ് ഷരൺ ജീവൻ നെടുംചേഴിയൻ എന്നിവർ ഇന്ന് ആദ്യഘട്ട മൽസരത്തിനിറങ്ങും പുരുഷ സിംഗിൾസിൽ യു എസ് ഓപ്പൺ ച്ചാമ്പ്യൻ ജുവൻ മാർട്ടിൻ രണ്ടാംഘട്ടത്തിലേക്ക് കട്ന്നു വനിതാ സിംഗിൾസിൽ ലോക രണ്ടാം നമ്പർതാരം നവോമി ഒസാക നിലവിലെ ചാമ്പ്യനും മൂന്നാം സീഡുമായ സിമോണ ഹാലെ എന്നിവരും രണ്ടാം ഷ്ട്ടത്തിലെത്തി

റംസാൻ വ്രതാരംഭത്തിന്റെ ഭാഗമായ ചടങ്ങുകള്ള നട്ടക്കുന്നതിനിടെയാണ് ബൈക്കിൽ എത്തിയ സംഘം വെട്ടിയുതിർത്തത്

ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോകോപ്പി ലഭിക്കുന്നതിനുമുള്ള അപേക്ഷകൾ ജൂൺ നാലിനകം സമർപ്പിക്കണം അപേക്ഷാഫോറങ്ങൾ സ്കൂളുകളിലും ഹയർസെക്കന്ററി പോർട്ടലിലും ലഭിക്കും

രാജി ഇന്നു പ്രാബല്യത്തിൽ വരും

റിപ്പോർട്ട് വന്നതോടെ പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റേയും നേതൃത്വത്തിൽ ശക്തമായ പ്രത്യിരോധ്യ പ്രവർത്തനങ്ങളാണ് പ്രദേശത്ത് തുടരുന്നത്